മേഖലയിൽ വരുത്തുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വിദ്യാഭ്യാസ കോൺക്ലെവ് പ്രധാനമന്ത്രി ഇന്ന് ഉത്ഘാടനം ചെയ്യും

നാശനഷ്ടം മലപ്പുറത്ത് ഇന്ന് റെഡ് അലെർട്ട്

കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ സഹമന്ത്രി സഞ്ജയ് ധോത്രെ എന്നിവർ പങ്കെടുക്കും വിദ്യാഭ്യാസ നയ രൂപീകരണ സമിതി ചെയർമാൻ അംഗങ്ങൾ പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണർ ശാസ്ത്രജ്ഞർ എന്നിവരുൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ വിദ്യാഭ്യാസ നയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കും

ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു ഇന്ത്യയുടെയും ചൈനയുടെയും പ്രത്യേക പ്രതിനിധികൾ അതിർത്തിയിലെ സ്ഥിതിഗതികൾ ടെലിഫോണിലൂടെ ചർച്ച ചെയ്തു ശാന്തിയും സമാധാനവും പൂർണ്ണമായും പുനസ്ഥാപിക്കാൻ ഇരുരാജ്യങ്ങളുടെയും പ്രത്യേക പ്രതിനിധികൾ നേരത്തെ നടന്ന ചർച്ചയിൽ ധാരണയിലെത്തിയിരുന്നു

ഗുജറാത്ത് കേഡർ ഐഎഎസ് ഉദ്യോഗസ്ഥനായ മുർമു ബുധനാഴ്ചയാണ് ലഫ്റ്റനൻറ് ഗവർണർ സ്ഥാനം രാജിവച്ചത്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

കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമറും റെയിൽ മന്ത്രി പീയൂഷ് ഗോയലും ചേർന്ന് വീഡിയോ കോൺഫെറൻസിലൂടെ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിപണിയിലെത്തിക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കും

കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ സഹായിക്കുകയാണ് ഇതുവഴി റെയിൽവേ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് റെയിൽവേ മന്ത്രാല്ലയം അറിയിച്ചു

കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം നടപടികളെന്ന് മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

തടസ്സമില്ലാതെയും ഉപാധികളില്ലാതെയും ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധം പുലർത്താൻ ജാദവിനെ പാകിസ്ഥാൻ അനുവദിക്കണമെന്ന് വിദേശ്യകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നീതിന്യായ കോടതിവിധി നടപ്പാക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും ശ്രീവാസ്തവ പറഞ്ഞു ജമ്മു കശ്മീർ ലഡാക്ക് പടിഞ്ഞാറൻ ഗുജറാത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പാക്കിസ്ഥാന്റെ പുതിയ ഭൂപടത്തിൽ എന്നിവ പ്രതിഫലിക്കുന്നത് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിലൂടെ കൂടുതൽ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ആഗ്രഹമാണെന്ന് വക്താവ് പറഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം തുർക്കി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജമ്മു കശ്മീരിനെക്കുറിച്ച് തുർക്കി നടത്തിയ പ്രസ്താവന വസ്തുതാപരമായി തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിചേർത്തു

രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ മരണം ഒരുലക്ഷത്തോടടുക്കുന്നു

കേന്ദ്ര ടെക്സ്റ്റൈയിൽസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വെർചൽ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുഖ്യാതിഥിയായിരിക്കും

എല്ലാവരും കൈത്തറി കരകൌശല വസ്തുക്കൾ ശീലമാക്കണമെന്നും തദ്ദേശ തൊഴിലാളികളെ ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കണമെന്നും കഴിഞ്ഞ മാസം നടന്ന മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് രാജ്യത്തുടനീളമുള്ള വിവിധ കൈത്തറി അഭ്യർത്ഥിച്ചിരുന്നു

ഇതുവരെയുള്ള കണക്കു പ്രകാരം സംസ്ഥാനത്ത് ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടിയ സംഖ്യയാണിത്

എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലെർട്ടാണ് കൂടുതൽ വിവരങ്ങളുമായി പാർവ്വതി

പാലക്കാട് നെല്ലിയാമ്പതിയിൽ മരപ്പാലത്തിന് സമീപഠ രണ്ടിടത്ത് മണ്ണിടിച്ചിലുണ്ടായി മലപ്പുറത്ത് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ജില്ലയിൽ എട്ട് ദുരിതാശ്ചാസ ക്യാമ്പുകൾ തുറന്നു

കേരളം ലക്ഷദ്വീപ് കർണാടകം തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി സി ഐ അവസാനിപ്പിച്ചു

മധുരയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് മധുര നഗരത്തിൽ ഗതാഗതക്കുരുക്ക് നീക്കാൻ നടപടികൾ സ്വീകരിച്ചുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു

ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായ്ടി കഴിഞ്ഞ വർഷം ജൽശക്തിമന്ത്രാലയവും സൃഷ്ടിച്ചു